വിട പറയുന്നു

ജി മാരുടെയും മൂന്ന് ദിവസത്തെ വാർഷിക സമ്മേളനത്തിന് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സ്ഥമീപം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങിന്റെ സാന്നിദ്ധ്യത്തിൽ ഇന്ന് തുടക്കമാകും നാളെ മുതൽ രണ്ട് ദിവസം സംസ്ഥാനം സന്ദർശിക്കാനെത്തുന്ന പ്രധാന്മന്ത്രീ നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗ്ലിക് വൃത്തങ്ങൾ പറഞ്ഞു ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം യുവാക്കളെ ഉൽപ്പതിഷ്ണുക്കൾ ആക്കാനുള്ള ശ്രമം എന്നിവ വാർഷിക യോഗത്തിൽ പ്രധാനമായും ചർച്ചു ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥൻ അറിയിച്ചു

തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർട്ടി ബൂത്ത് തല പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി സുരേഷ്

സൈന്യം സി

ജി തുടങ്ങി രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും കോൺഗ്രസ്സ് നിരന്തരം അവഹേളിക്കുകയാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വിധിപ്രസ്താവമുണ്ടാകുമ്പോൾ സുപ്രീംകോടതിയെ പോലും കോൺഗ്രസ്സ് ചോദ്യം ചെയ്യുകയാണ്

കോടതിയെ ഭീഷണിപ്പെടുത്താൻ സാധിക്കാതിരുന്നത്യുണ് ഇംപീച്ച്മെന്റ നീക്കത്തിന് കാരണമായതെന്നും പ്രശ്യന്മീന്തി അറിയിച്ചു വോട്ടിങ് യന്ത്രത്തിന്റെ കാര്യത്തിൽ ക്ടോൺഗ്രസ്സ് സൌകര്യപൂർവ്വം നിലപാട് മാറ്റുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ്സിന് അന്മുകൂലമാണ് അവർ വോട്ടിങ് യന്ത്രങ്ങളെ അംഗീകരിക്കും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശാക്തീകരണത്തിലൂടെ ്മാത്രമേ ഇത്തരം നീക്കങ്ങളെ മറി കടക്കാനാവൂ എന്നും ശ്രീ

ഗവൺമെന്റിന്റെ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നിരവധി ക്ഷേമപദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് സ്ത്രീകൾ മുതിർന്ന പൌരൻമാർ യുവതീ യുവാക്കൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാൻ ഗവൺമെന്റ വിവിധ പദ്ധതികൾ ആവിഷ്ക്കരിച്ച് നടപ്പിലാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു പാർപ്പിടം ആരോഗൃ പരിരക്ഷ ശുചിത്വം തുടങ്ങിയ മേഖലകൾ രാജ്യത്ത് ഗണ്യമായ നേട്ടമുണ്ടാക്കിയതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

താക്കൂറും സഹായികളും ഗവൺമെന്റ് ജീവനക്കാരും കേസിൽ പ്രതികളാണ്

കേസിൽ ഒരു പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയുടെ മൊഴി ജില്ല ജഡ്ജ് പൂനം എ

സജ്ജൻകുമാറിനോടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാനാവതി കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ ആണ് രണ്ടാമത്തെ കേസ് ഫയൽ ചെയ്തത്

ഇന്നലെ മുംബൈയിൽ വാർത്താസമ്മേളനത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് സിഖ് വിരുദ്ധ സംഘത്തെ നയിക്കുന്നത്കണ്ടതായി ഒരു മാധ്യമപ്രവർത്തകൻ വെളിപ്പെടുത്തിയിരുന്നുവെന്നു അമിത്ഷ് പറഞ്ഞു അയോധ്യ കേസിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന് ഗവൺമെന്റ് കോടതിയോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുത്തലാഖ് വിഷയം ഒരു സാമൂഹൃ പ്രിഷ്യമാണ മറിച്ച് മതപരമല്ലെന്നു ബി ജെ പി അധ്യക്ഷൻ പ്രാഞ്ഞു

അതിനിടെ സംസ്ഥാനത്ത് പ്രക്ഷോഭം സൃഷ്ടിക്കുന്നതിനുളള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ മാസം ദന് നടന്ന അക്രമസംഭവങ്ങളെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിച്ചു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഈ വിഷയത്തിൽ പൊലീസ് അതിവേഗം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൊല്ലപ്പെട്ട സുമിത്തിന്റെ മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകി

ബിൽ ഈ സമ്മേളന കാലത്ത് തന്നെ രാജ്യസഭയും പരിഗണിക്കും

അഞ്ചോ അതിലധികമോ വർഷം വിവാഹിതരായി കഴിയുന്ന കുട്ടികളില്ലാത്തവർക്ക് അടുത്ത ബന്ധുവിൽ നിന്ന് വാടക ഗർഭപാത്രം സ്വീകരിക്കാം വിവാഹിതരല്ലാത്ത പങ്കാളികൾ പങ്കാളി മരിച്ചവർ വിവാഹമോചിതർ ഏക രക്ഷിതാക്കൾ സവർഗ്ഗ പങ്കാളികൾ എന്നിവർക്ക് അനുമതിയില്ല ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നവർ വിവാഹിതയും അമ്മയുമായിരിക്കണം ഒരാൾക്ക് ഒരു തവണയേ നൽകാനാവൂ

ദേശീയ സംസ്ഥാന തലങ്ങളിൽ വാടക ഗർഭപാത്ര ബോർഡ് രൂപീകരിക്കണമെന്നും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കണമെന്നും ശുപാർശയുണ്ട്

നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ലോക്സഭ ബിൽ പാസ്സാക്കിയത് വാടക ഗർഭപാത്രം വാണിജ്യപരമായി ഉപയോഗിക്കുന്നത് തടയാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി ജെ

അറിയിപ്പ് നേരിട്ട് ലഭിക്കാത്തവരോടും എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്

അസ്സം ക്ർഷക്ർക്കുളള വായ്പ സബ്സിഡി പദ്ധതിപലിശയിൽ ഇളപ്പ് നൽകുന്ന പദ്ധതി ഇൻസന്റീവ് സ്കീം എന്നിവയാണ് പദ്ധതികൾ

മുംബൈയിൽ കടലിന് അഭിമുഖമായുളള ഈ കെട്ടിടം സംരക്ഷിത സാംസ്കാരിക കേന്ദ്രമാക്കണമെന്നാവശൃപ്പെട്ട് ബി ജെ പി എംഎൽഎ മംഗൾ പ്രഭാത് ലോധ കത്തു നൽകിയിരുന്നു കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ നിലവിലുളളതിനാൽ നടപടി വൈകുന്നതെന്ന് ലോധക്ക് മറുപടി ലഭിച്ചിരുന്നു

സിറിയയില്ലെ ്ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘത്തെ പരാജയപ്പെടുത്ത്ക്ക് ത്ങ്ങൾക്കായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡ്രൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു ട്വീറ്റിന് പിന്നാലെ യു എസ് സേന സിറിയയിൽ നിന്ന് തിരിച്ചുവരാൻ ആരംഭിച്ചു്വെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അഞ്ച് വർഷം മുൻപ് ഐ എസ് ഇവിടെ വളരെ ശക്തമായിരുന്നെന്നും അവരുടെ പ്രാമുഖ്യം യു

എ

സൌദി അറേബ്യയിൽ നിന്നാണ് കപ്പൽ യു എ ഇ യിലേക്ക് പോകുക